ഇന്നലെ ഒരു മരണം

നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ആഗോള മൊബിലിറ്റി ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഗതാഗതവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെകുറിച്ച് അവബോധം സൃഷ്ടി ക്കുകയും ഈ രംഗത്തെ ബന്ധപ്പെട്ടവരെ ഒരുമിച്ച് കൊണ്ടുവരികയുമാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടിയുടെ മുഖ്യലക്ഷ്യം അന്താരാഷ്ട്ര സംഘടനകൾ രാജ്യത്തി നകത്തെയും പുറത്തെയും അക്കാദമിക് വിദഗ്ദ്ധർ വൻകിട ആഗോള കമ്പനികൾ ബാറ്ററി നിർമ്മാതാക്കൾ സാങ്കേതിക വിദ്യാ സേവന ദാതാക്കൾ തുടങ്ങിയവർ മൊബിലിറ്റി മേഖലയുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും

പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ ബദൽ ഇന്ധനങ്ങൾ ചരക്ക് നീക്കം ഡാറ്റ വിശ്ലേഷണം മുതലായ വിഷയങ്ങളിൽ വിപുലമായ ചർച്ചകൾ നട ക്കും സംസ്ഥാനത്ത് എലിപ്പനി നിയന്ത്രണവിധേയമാവുന്നു ഇന്നലെ എലി പ്പനി ലക്ഷണവുമായി ഒരാൾ മരിച്ചു

തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രണ്ടു പേർ മരിച്ചത് എലി പ്പനിലക്ഷണത്തോടെയാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി

അഞ്ചുപേർക്ക് ഡെങ്കിപ്പനിയും ഒരാൾക്ക് മലേറി യയും കണ്ടെത്തി

പത്തനംതിട്ടയിൽ മൂന്നുപേർക്കും കൊല്ലത്തും ആലപ്പുഴയിലും ഓരോരുത്തർക്കുമാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് മലപ്പുറം ഒഴൂരിൽ ഒരാൾക്ക് മലേറിയ കണ്ടെത്തി

ജില്ലയിൽ എലിപ്പനി ബാധിച്ച് രണ്ടുപേരാണ് ഇതുവരെ മരിച്ചത് പാലക്കാട് ജില്ലയിൽ സാംക്രമിക രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നും രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ജില്ലയിൽ കഴിഞ്ഞദിവസം ഡെങ്കിപ്പനി ലക്ഷണ ങ്ങളോടെ നാലുപേരും എലിപ്പനി ലക്ഷണങ്ങളോടെ അഞ്ചുപേരുമാണ് ചികിത്സ തേടിയത്

ഇന്നലെ എലിപ്പനി ബാധിച്ച് ഒരാൾകൂടി മരിച്ചതോടെ മരണം മൂന്നായി പകർച്ചവ്യാധി പ്രതിരോധ സന്ദേശവുമായി ഡോക്സി വാഗൺ കൊല്ലം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങി പകർച്ച രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കേണ്ട മുൻകരു തലുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്നതിന് രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വാഹനത്തിന്റെ യാത്ര

ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രവർത്ത നത്തിൽ പങ്കാളികളാകും ് ് ് ് ് ് ് പ്രളയ ബാധിത സ്ഥലങ്ങളിൽ നാളെയും മറ്റന്നാളും കിണറുകളിലെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന നടത്തും ഹരിത കേരളം മിഷ ന്റെയും സംസ്ഥാന മലിനീകരണ ബോർഡിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്ഥയം ഭരണ വകുപ്പും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റും വാട്ടർ അതോറിറ്റിയും ചേർന്നാണ് പരിശോധന നടത്തുക പ്രളയാനന്തര ശുചീകരണപ്രവർത്തന്ങ്ങളുടെ ഭാഗമായി ക്ലോറിനേഷൻ നടത്തിയ കിണറുകളിലെ കുടിവെള്ളമാണ് പരിശോധനയ്ക്ക് വിധേ യമാക്കുന്നത് സംസ്ഥാനത്തെ നാല് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേ ശനം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമവാദം കേൾക്കും തൊടുപുഴ അസ്ഹർ വയനാട് ഡി എം പാലക്കാട് പി കെ ദാസ് വർക്കല എസ് ആർ കോളേജുകൾക്ക് ഹൈക്കോടതി പ്രവേശനാനുമതി നൽകിയത് ബുധനാഴ്ച സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച ഹർജി യിലായിരുന്നു നടപടി കേസിൽ അന്തിമവാദം ഇന്നലെ കേൾക്കാൻ കോടതി തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നേതൃത്വത്തിലുളള ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ജലനിരപ്പ് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് ഉപസമിതിയാണെന്നും ഇക്കാര്യത്തിൽ കോടതിക്ക് നിർദ്ദേശം നൽകാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ച് വൃക്തമാക്കി കേരളവും തമിഴ്നാടും കേന്ദ്രവും അവ സരത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ തങ്ങൾക്ക് എന്തു ചെയ്യാനാവുമെന്നും സുപ്രീം കോടതി ചോദിച്ചു

തിങ്കളാഴ്ച അഖിലേന്ത്യാ ഹർത്താൽ നടത്തു മെന്ന് ഇടതുപാർട്ടികളും പ്രഖ്യാപിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും പാചക വാതകത്തിന്റെയും അവശ്യസാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നത് സാധാര ണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയ സാഹചര്യത്തിലാണ് ബന്ദ് സംഘടിപ്പിക്കു ന്നതെന്ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ സംയുക്ത വാർത്താസമ്മേള നത്തിൽ അറിയിച്ചു പെട്രോളിനെയും ഡീസലിനെയും ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ പ്രളയബാധിത പ്രദേശ ങ്ങളെ ഒഴിവാക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് അഹമ്മദ് പട്ടേൽ പറഞ്ഞു

വാഹനങ്ങൾ തടയില്ലെന്നും പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘട്ടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു

പി കെ ശശി എം എൽ എയ്ക്കെതിരെ ഉയർന്ന ആരോപണം യോഗ ത്തിന്റെ പരിഗണനയ്ക്കു വന്നേക്കും ഭരണ സംഘടനാ തലത്തിലെ വിവിധ വിഷ യങ്ങളും യോഗം ചർച്ച ചെയ്യും ഷൊർണ്ണൂർ എം എൽ എ പി കെ ശശിക്കെതിരായ പീഡനാരോപണ ത്തെകുറിച്ച് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടി വിവിധ സംഘടനകൾ നൽകിയ പരാതിയിലാണ് തുടർനടപടി സംബന്ധിച്ച് നിയമോപ ദേശം തേടിയത് അതിനിടെ പി കെ ശശിക്കെതിരെ ഡി വൈ എഫ് ഐ വനിതാ നേതാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി അറിയി ക്കണമെന്നും എത്രയും വേഗം നീതി ലഭ്യമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചി ട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും

പരമ്പര തോറ്റെങ്കിലും അവസാന ടെസ്റ്റിൽ ജയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കളിക്കിറങ്ങു ന്നത് അതേസമയം ബാറ്റ്സ്മാൻ അലസ്റ്റർ കുക്കിന് വിജയത്തോടെ യാത്രയയപ്പ് നൽകുകയാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം വയനാട്ടിൽ മാവോവാദികൾ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ മല പ്പുറം ജില്ലയുടെ മലയോരമേഖലയിൽ പൊലീസ് തിരച്ചിൽ ശക്തമാക്കി

സംസ്ഥാനത്തെ പ്രളയം ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിന്റെ ഫലമാണെന്നാരോപി ക്കുന്ന ലഘുലേഖ വയനാട് മേഖലയിൽ മാവോവാദികൾ വിതരണം ചെയ്തതായി പൊലീസിന് വിവരം ലഭിച്ചു

പ്രളയകാലത്ത് ആദിവാസികൾക്ക് ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ മാവോവാ ദികൾ പങ്കിട്ടതായും സൂചനയുണ്ട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൊഴികെ പ്രളയ ദുരിത ബാധിതർക്ക് കിറ്റ് വിതരണം പൂർത്തിയായി

കൂല്യങ്ങൾ കൈപ്പറ്റുന്ന അനർഹർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന് മന്ത്രി കെ

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധി ധനസമാഹരണ ത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവരുടെ പട്ടിക അതത് പഞ്ചായത്ത് വില്ലേ ജ് ജില്ലാ ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കുന്നതിന് നവകേരള ഭാഗ്യക്കുറിയുടെ ജില്ലാതല ടിക്കറ്റ് പ്രകാശ നവും മന്ത്രി നിർവ്വഹിച്ചു

പ്രഖ്യാപിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരം നൽകുന്നതിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ അർഹരായ പലരെയും പട്ടി കയ്ക്ക് പുറത്താക്കുകയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു

വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കെ

ബി തീവ്ര ശ്രമം നടത്തിവരികയാണ്

സേവനവുമായി കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മൊബൈൽ മെഡിക്കൽ ട യൂണിറ്റ് പര്യടനം തുടങ്ങി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്നുമുതൽ മൂന്നു ദിവസം മെഡിക്കൽ കൃാമ്പുകൾ നടത്തും തുടർന്ന് മറ്റ് ജില്ലകളിലും ചികിത്സാ സഹായം നൽകും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കോട്ട ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി

വാര്യർ നിർവ്വഹിച്ചു

ഇടിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങൾ ജിയോളജി സംഘം പരിശോധിച്ചു സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് പ്രാഥമിക നിഗമനം വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾക്കു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കും ശിങ്കപ്പാറ മുതൽ കേരളമേട് വരെ റോഡിൽ നാലിടത്താണ് വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്

പ്രദേശങ്ങളിലുണ്ടായ ഭൌമ പ്രതിഭാസങ്ങളെക്കുറിച്ച് ജിയോളജിക്കൽ സർവ്വെ ഉദ്യോഗസ്ഥർ പ്രാഥമിക പഠനം തുടങ്ങി മൂന്നാർ ഗവൺമെന്റ് കോളെജ് പരിസരത്തുണ്ടായ മണ്ണിടിച്ചിൽ സംഘം ഇന്നലെ പരിശോധിച്ചു

പ്രളയബാധിത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അംഗൻവാടി ജീവനക്കാർ ഇവ കുട്ടികൾക്ക് വിതരണം ചെയ്യും

നവകേരള സൃഷ്ടി എന്നത് ഇപ്പോഴത്തെ കേരളത്തെ നിലനിർത്തലാകരുതെന്ന് ഐക്യരാഷ്ട്ര ദുരന്ത ലഘൂക്കണ വിഭാഗം തലവൻ മുരളി തുമ്മാരകുടി പറഞ്ഞു ദുരന്തകാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം